ക്രമപ്പെടുത്തിയതായും ദൂർബല ജനവിഭാഗങ്ങളെ സാമ്പത്തിക പരിപാടികളുടെ ഭാഗമാക്കാൻ കഴിഞ്ഞിരുയും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി

ആവശ്യപ്പെട്ട് സന്നദ്ധ സംഘടനകളുടെ ഏകോപന സമിതി നടത്തിവന്ന പ്രക്ഷോഭം അവസാനിപ്പിച്ചു

ആക്രമണത്തിൽ സി ഐ എസ് എഫ്

ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വിധിക്കെതിരെ റിവ്യു ഹർജി നൽകാൻ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകാനാകില്ലെന്ന് കേരള ഹൈക്കോടതി

ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്തൃയുടെ പി

സിന്ധുവും കിടംബി ശ്രീകാന്തും കാർട്ടർ ഫൈനലിൽ

കറൻസി അസാധുവാക്കി രണ്ടു വർഷം പൂർത്തിയായതിനോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച കുറിപ്പിലാണ് കേന്ദ്ര മന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത് എന്നാൽ നോട്ട് അസാധുവാക്കൽ സംബന്ധിച്ച് വിമർശനവുമായി മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻ സിംഗ് രംഗത്തുവന്നു കൂടുതൽ വിവരങ്ങളുമായി അർച്ചന സതീഷ്

വൻതോതിൽ പണശേഖരം സൂക്ഷിച്ചിരുന്നവർ ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ നിർബന്ധിതരായി ഇത് വിവിധ സ്രോതസ്റ്റിലൂടെയുള്ള വൻകിടക്കാരുടെ കൈയിലുള്ള പണം സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാക്കാൻ സഹായകരമായി

നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതാണ്ട് മറ്റൊരു നേട്ടം ഡിജിറ്റൽ പണമിടപാടിന് വലിയ സ്വീകാത്യത്ര്യക്കൈവന്നതായി ശ്രീ

എന്നാൽ രാജ്യത്ത് മൂല്യമേലിയ് നോട്ടുകൾ അസാധുവാക്കിയ നടപടി എല്ലാ ജനവിഭാഗങ്ങളെയും ബ്രാധിച്ചതായി മുൻ പ്രധാനമന്ത്രി ഡോ

നോട്ട് അസാധുവാക്കിയ തീരുമാനത്തിന്റെ നടുക്കത്തിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ആധാരശിലയായ ചെറുകിട ഇടത്തരം വ്യാപാരികൾ ഇതുവരെ മുക്തമായിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ നോട്ട് അസാധുവാക്കൽ കാരണമായതായി ഡോ

ജെ

മുതിർന്ന നേതാവ് എൽ

രാജ്യത്തിന്റെ വികസനത്തിന് ശ്രീ അദ്ധനി നൽകിയ സംഭാവനകൾ അവിസ്മരണീയമാണെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ജനസൌഹൃദ നയങ്ങളിലൂടെ ഭാവിയെ മുൻനിർത്തി മന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു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

സേനാ വിഭാഗങ്ങളുടെ ആയുധം വാങ്ങൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ സഹായിക്കുന്നതിനാണ് ഈ നടപടി

സേനകളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിക്കാനും പ്രവർത്തന മികവ് ഉറപ്പാക്കാനുമാണ് തീരുമാനം

കോ ഓർഡിനേഷൻ കമ്മിറ്റി രണ്ട് ദിവസമായി നടത്തി വന്നിരുന്ന പ്രതിഷേധ സമരം പിൻവലിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി ലാൽനുൻ മാവിയ പടുവങ്കോയേയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെയും ചീഫ് ഇലക്ടറൽ ഓഫീസർ എസ്

ശശാങ്കിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടും കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രക്ഷോഭം നടന്നുവരികൂയായിരുന്നു അതിനിടെ സംസ്ഥാന ഗവൺമെന്റ് ഉദ്ദ്യോഗ്സ്ഥരുമായും എൻ

ഒ കോ ഓർഡിനേഷൻ ക്രിമ്മിറ്റിയുടെ നേതാക്കളുമായും കൂടുതൽ ചർച്ചകൾ നടത്താനായി ്വെള്ളിയാഴ്ച ഇലക്ഷൻ കമ്മീഷൻ ഉന്നതതല ടീമിന്റെ മിസോറാമിലേക്ക് അയയ്ക്കാൻ തീരുമാനിച്ചു ടീമിനെ ക്ട്ഡ്പ്യൂട്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുദീപ് ജയിൻ നയിക്കും

സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ചെലവ് സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ കക്ഷിയോ വഹിക്കാവുന്നതാണ് പത്രിക സമർപ്പണത്തിന് ശേഷം കേസിന്റെ സ്ഥിതി മാറിയാൽ അക്കാര്യം റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കാൻ സ്ഥാനാർത്ഥിക്ക് അവകാശം ഉണ്ടെന്നും ഇത് വീണ്ടും പ്രസിദ്ധപ്പെടുത്താവുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി

ഇത് സംബന്ധിച്ച സ്വകാര്യ ഹർജി പരിഗണിക്കുകയായിരു്ന്നു ്കോടതി ഗവൺമെന്റിന്റെയും ദേവസ്വം ബ്ബോർഡ്ടിന്റേയും അവകാശങ്ങളിൽ ഇടപെടാനാകില്ലെന്നും ഹൈക്കോട്ടതി വൃക്തമാക്കി

എം ശ്രമിക്കുകയാണെന്ന് ബി ജെ

സംസ്ഥാന അധൃക്ഷൻ പി

വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള ബി ജെ

യുടെ ശ്രമത്തെ കേസെടുത്ത് നശിപ്പിക്കാൻ നോക്കിയാൽ നിയമം കൊണ്ട് തന്നെ അതിനെ ചെറുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

എ യുടെ ശബരിമല സംരക്ഷണ രഥയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ കാസർഗോഡ് മധൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർണ്ണാടക മുൻ മുഖ്യമന്ത്രിയും സംസ്ഥാന ബി ജെ പി അദ്ധ്യക്ഷനുമായ ബി

സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു ആചാര അനിഷ്ടാനങ്ങളിൽ വെള്ളം ചേർക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് ശ്രീ

ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീംകോടതിയിൽ പുനപരിശോധനാ ഹർജി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ശ്രീധരൻപിള്ളയും എൻ

എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയും ചേർന്നാണ് രഥയാത്ര നയിക്കുന്നത്

സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യ്ാത്രക്ക് കാസർഗോഡ് തുടക്കമായി

സി

മുൻ പ്രസിഡന്റ് എം

ഹസ്നൻ യാത്ര ഉദ്ഘാടനം ചെയ്തു നാളെ കണ്ണൂരിലെത്തുന്ന യാത്രക്ക് വൈകിട്ട് പിലാത്തറയിൽ സ്വീകരണം നൽകും

സിന്ധുവും കിഡംബി ശ്രീകാന്തും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു

സിന്ധു കാർട്ടർ ഫൈനലിൽ കടന്നത് നാളെ കാർട്ടറിൽ സിന്ധു ചൈനയുടെ ഷീ ബിങ്ങ്ജാവോയെ നേരിടും പുരുഷ സിംഗിൾസിൽ ഇന്തോനേഷ്യയുടെ ടോമി സുഗിയാർത്യോട്ടിയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത് ചൈനീസ് ത്രീയ്ക്പേയുടെ ചൌ ടീൻ പെന്നിനെ ശ്രീകാന്ത് കാർട്ടർ ഒഫ്ഫെന്ലിൽ നേരിടും

ഉദ്ഘാടന മത്സരത്തിൽ ഇന്തൃ ന്യൂസിലന്റിനെ നേരിടും

ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ പാകിസ്ഥാനെയും വെസ്റ്റിൻഡീസ് ബംഗ്ലാദേശിനെയും നേരിടും

വെസ്റ്റിൻഡീസാണ് നിലവിലെ ചാമ്പ്യന്മാർ ഓസ്ട്രേലിയ മൂന്ന് തവണ കിരീടം നേടിയിട്ടുണ്ട് ഹർമൻ പ്രീത് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മിതാ്ലിരാജ് സ്മൃതി മണ്ടാന എന്നീ മികച്ച താരങ്ങളും ഇയ് ട്ടീമിലുണ്ട് ഇന്ത്യക്ക് പുറമെ ഓസ്ട്രേലിയ ന്യൂസിലന്റ് പാകൃസ്ഥാൻഐർലന്റ് എന്നീ രാജ്യങ്ങളാണ് ഗ്രൂപ്പ് ബി യിങ്ലൂ ട്ീമുകൾ

സി സി റാങ്കിംഗിൽ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ

ഐ എസ് എഫ്

ബസ്തറിൽ ബച്ചേലി മേഖലയിൽ കേന്ദ്ര വൃവസായ സുരക്ഷാ സേനാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ മാവോയിസ്റ്റുകൾ സ്ഫോടനം നടത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ജോലികൾക്ക് പോയ ജവാന്മാരാണ് ആക്രമണത്തിനിരയായത്

കുഴിഞ്ഞ് നാല് ദിവസമായി തുടരുന്ന പോരാട്ടത്തിൽ താല്പിബ്ട്എന്റ് ശക്തി കേന്ദ്രങ്ങളായ മേഖലയിലെ നിരവധി ഗ്രാമങ്ങൾ ്തിരിച്ചു പിടിച്ചതായി സേന അവകാശപ്പെട്ടു വടക്കൻ ്ബ്ഗ്ലാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ രണ്ട് വർഷമായി താലിബാൻ ്അധീനതയിലുള്ള ഗ്രാമങ്ങളാണ് സേന തിരിച്ചു പിടിച്ചതെന്ന് പ്ര്യോലീസ് മേധാവി ഇക്രമുദീൻ സാരി വാർത്താ ഏജൻസിയോട് പറഞ്ഞു

ഡോളറിനധികമാകരുതെന്ന് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്